സമരം അടുത്തമാസം മൂന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങും

വരുന്ന ദശകത്തിൽ ലോകം നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റി ലോകനേതാക്കളുമായി ഇന്നും നാളെയും അദ്ദേഹം ചർച്ച നടത്തും രണ്ടു ദിവസത്തെ ഉച്ചകോടിയ്ക്കിട യിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ എന്നിവരുമായി ത്രികക്ഷി ചർച്ചയിലും നരേന്ദ്രമോദി പങ്കെടുക്കും

ഇക്കാര്യം ഇന്ന് സുപ്രീം കോടതിയെ അറി യിക്കും

വിളിച്ചുകൂട്ടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗിന് കത്തയച്ചു പ്രളയദുരന്തം നേരിട്ട കേരളത്തിന് കേന്ദ്ര സംഘങ്ങളുടെ റിപ്പോർട്ട് വിലയിരുത്തി അടിയന്തരസഹായം നൽകണമെന്ന് കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

് ് ് ് ് ് ചികിത്സിക്കാൻ പണമില്ലാതെ ഒരാളും മരിക്കുന്ന സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മെഡി ക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും കൂടുതൽ ശാക്തീകരിക്കു ന്നത് ഇതിന്റെ ഭാഗമായാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാ ക്കി മെഡിക്കൽ കോളേജിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർ ത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ശബരിമല പ്രശ്നത്തിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്ര ട്ടറി എ

രാധാകൃഷ്ണൻ അടുത്ത തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റി നുമുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങും ശബരിമലയിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീക്കണമെന്നും ഭക്തർക്ക് സൌകര്യമൊരു ക്കണമെന്നും കെ സുരേന്ദ്രനടക്കം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെ തിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ നിരാഹാരസമരം അതേസമയം ശബരിമലയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ബി ജെ പി സമരം മാറ്റിയത് മുഖ്യമന്ത്രിയും അവരും തമ്മിലുണ്ടാക്കിയ രഹസൃധാരണയുടെ ഭാഗമായാണെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി

ഇതോടെ ഇന്നും ശബരി മല പ്രശ്നത്തിൽ നിയമസഭ ബഹളത്തിൽ മുങ്ങുമെന്നാണ് വൃക്തമായ സൂച ന അതിനിടെ ശബരിമലയിലെ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും എന്നാൽ മകരവിളക്ക് വരെ നിരോധനാജ്ഞ തുടരണമെ ന്നാണ് പൊലീസിന്റെ നിർദ്ദേശം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് വൈകിട്ട് പമ്പയിലെത്തി സ്ഥിതി വിലയിരുത്തും ശബരിമലയിൽ ആദ്യഘട്ടസേവനം പൂർത്തിയാക്കിയ പൊലീസ് സംഘം ഇന്ന് മടങ്ങും രണ്ട് ഐ ജിമാർ ഒമ്പത് എസ് പി മാർ എന്നിവര ടങ്ങുന്ന പുതിയ സംഘം ഇന്നു ചുമതലയേൽക്കും യുവതീപ്രവേശനവു മായി ബന്ധപ്പെട്ട് അനിഷ്ടസംഭവങ്ങൾ ്ഉണ്ടാവാത്തിനാൽ പമ്പ നില യ്ക്കൽ എന്നിവിടങ്ങളിലെ പൊലീസിന്റെ എണ്ണം കുറയ്ക്കാനാണ് തീരു മാനം

സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും

മതവികാരം പ്രണപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലായ രഹ്ന ഫാത്തിമയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശൃപ്പെട്ട് പൊലീസ് നൽകിയ ഹർജിയിലും കോടതി ഇന്ന് തീരുമാനമെടുക്കും

ഭരണഘ ടനാ ബഞ്ചിലടക്കം അംഗമായിരുന്ന കുര്യൻ ജോസഫിന് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി എല്ലാ സമ സൃകൾക്കും ഉത്തരമുണ്ടായിരുന്ന മികച്ച നൃായാധിപനായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫെന്ന് ചടങ്ങിൽ സംസാരിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് പറഞ്ഞു

ആകാശവാണിയുടെയും ദൂരദർശന്റെയും ഡൽഹിയിലെ നാഷ ണൽ ട്രെയിനിംഗ് അക്കാദമി മേധാവി ജോർജ്ജ് ഇരുമ്പൻ ഇന്ന് വിരമി ക്കും അഞ്ചുവർഷമായി പരിശീലനകേന്ദ്രത്തിന്റെ അഡീഷണൽ ഡയറ കൂർ ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചുവരികയാണ്

പ്രകളയ പശ്ചാത്തലത്തിൽ ചെലവുചുരുക്കി കലോത്സവം നടത്തുന്നതിനാൽ വ ഇക്കുറി വിപുലമായ ഉദ്ഘാടന ചടങ്ങുകളുണ്ടാവില്ല

ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു ഇതോടെ ഒമ്പത് കളിയിൽ നിന്ന് എട്ടുപോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തും ചെന്നൈയിൻ എട്ടാം സ്ഥാനത്തും തുടരുന്നു ഇന്ന് ബംഗളുരു എഫ് സി പൂനൈ എഫ് സിയെ നേരിടും

സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ അംഗീകാരം റദ്ദാ ക്കിയതായി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി

കോഴിക്കോട്ട് ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം എഫ് സിയും ചർച്ചിൽ ബ്രദേഴ്സ് ഗോവയും ഇന്ന് ഏറ്റുമുട്ടും

എം

സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചിനാണ് മത്സരം

പ്രഥമ നാഗേഷ് ട്രോഫി ദേശീയ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണ്ണ മെന്റിലെ ഗ്രൂപ്പ് ബി മത്സരങ്ങൾ ഇന്ന് ഹരിയാനയിലെ അംബാലയിൽ തുട ങ്ങും നാളെ കേരളത്തിന്റെ ആദ്യമത്സരത്തിൽ ഹരിയാനയാണ് എതിരാ ളികൾ

അടച്ചുപൂട്ടില്ലെന്ന് ഐ സി എ ആർ ഉറപ്പുനൽകിയതായി മന്ത്രി വി

ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര കൃഷിമന്ത്രിക്കും ഐ സി എ ആർ ഡയറക്ടർ ജനറലിനും മന്ത്രി കത്തയച്ചിരുന്നു

കാലിക്കറ്റ് സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ ബിരുദ ബിരുദാനന്തര ബിരുദ പരീക്ഷകളും മാറ്റിവെച്ചു പുതുക്കിയ തിയ്യതി പിന്നീട് അറിയിക്കും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് മാറ്റ മെന്ന് സർവകലാശാല അറിയിച്ചു

കണ്ണൂർ കീഴാറ്റൂരിലെ ദേശീയപാതാ ബൈപ്പാസ് നിർമ്മാണത്തി നെതിരെ സമരം ശക്തമാക്കാൻ വയൽക്കിളികൾ തീരുമാനിച്ചു

വൈക്കത്തഷ്ടമി ഉത്സവം ഇന്ന് പുലർച്ചെ നാലരയോടെ അഷ്ടമി ദർശനത്തിന് തുടക്കമായി

ആശയങ്ങളുടെയും സ്വാധീനം മൂലമാണ് പുരുഷമേധാവിത്തം ഇന്നും തുട രുന്നതെന്ന് വനിതാകമ്മീഷൻ ചെയർപേഴ്സൺ എം

കാഞ്ഞങ്ങാട് മുൻസിപ്പൽ ടൌൺഹാളിൽ ഗാർഹിക പീഡന നിരോധന നിയമം സംബന്ധിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു അവർ

കോഴിക്കോട് റെയിൽവെ കാർട്ടേഴ്സ് പരിസരം അടിയന്തരമായി കാട് വെട്ടിമാറ്റി വൃത്തിയാക്കാൻ ജില്ലാ കലക്ടർ സാംബശിവറാവു റെയിൽവെ സ്റ്റേഷൻ മാനേജർക്ക് നിർദ്ദേശം നൽകി സാമൂഹ്യവിരുദ്ധർ താവളമാക്കിയ രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കഴിഞ്ഞ് ദിവസം ദുരൂ ഹസാഹചര്യത്തിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നു

ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ വിദ്യാർത്ഥിനി രാഖികൃഷ്ണ മരിക്കാനിടയായ സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിനുനേരെ ഉണ്ടായ പൊലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരാഹ്വാനം

കിത്താബ് എന്ന നാടകം സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കി ല്ലെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു നാടകം പിൻവലിച്ചതായി മേമുണ്ട ഹയർ സെക്കന്ററി സ്കൂൾ ഹെഡ്മാസ്റ്ററും പ്രിൻസിപ്പലും എസ് കെ എസ് എസ് എഫ് നേതാക്കൾക്ക് രേഖാമൂലം ഉറപ്പുനൽകിയതായി സംഘടനയുടെ ജില്ലാ കമ്മിറ്റി വൃക്തമാക്കി

ഹിക നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടത്തിവരുന്ന പ്രത്യേക പരി പാടികൾ ഈ വർഷം ഒഴിവാക്കിയതിൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു

കണ്ണൂർ ചെറുപുഴയ്ക്കടുത്ത് കോഴിച്ചാലിൽ ഇന്നലെ വൈകിട്ട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു കോഴിച്ചാൽ ക്ഷീരോത്പാ ദക സംഘം സെക്രട്ടറി പൌലോസ് കോഴിച്ചാലിലെ ബെന്നി എന്നിവരാണ് മരിച്ചത്